ശക്തിയേകാൻ ആത്മനിർഭർ ഭാരത് അഭിയാന് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

നാമനിർദ്ദേശ ന് പത്രികാ സമർപ്പണം നാളെ മുതൽ

ഇന്ന് മഹാശിവരാത്രി

തുടക്കം

സ്വാമി ചിത്ഭവാനന്ദജിയുടെ ഭഗവത്ഗീതയുടെ കിൻഡിൽ പതിപ്പ് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ലോകം കോവിഡ് എന്ന മഹാമാരിയോട് പോരാടുമ്പോൾ ഇന്ത്യ മരുന്നുകളടക്കമുള്ള സഹായങ്ങളുമായി തങ്ങൾക്ക് ആകുന്നതെല്ലാം ചെയ്യുന്നുണ്ട് വാക്സിൻ കണ്ടുപിടിക്കുന്നതിൽ ശാസ്ത്രജ്ഞർ വിശ്രമമില്ലാതെ ജോലി ചെയ്തു ഇന്ത്യയുടെ വാക്സിൻ ലോകത്തെമ്പാടും എത്തിക്കാൻ ആക്ടുന്നതിൽ രാജ്യം അഭിമാനം കൊള്ളുന്നതായും പ്രധാനമന്ത്രി പറ്റീഞ്ഞു്

കീര് ്ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ച്ചോദിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്യുന്നു

പൂർത്തുക്കൊണ്ടു തന്നെ കിൻഡിൽ പതിപ്പ് പുറത്തിറങ്ങുന്നതോടെ ്രൂകൂടുതൽ യുവാക്കൾക്ക് ഭഗവത്ഗീതയുടെ സാരംശം അടുത്തറിയാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

അമേരിക്കൻ പ്രസിഡന്റ് ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ജപ്പാൻ പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖരും ഉച്ചകോടിയിൽ സംബന്ധിക്കും

ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾക്കും കർശന നിയന്ത്രണമേർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അയൽസംസ്ഥാനങ്ങളിൽ കോവിഡ് വർദ്ധിക്കുന്ന സാഹചരൃം കൂടി പരിഗണിച്ച് ബംഗളുരുവിലും സമീപ പ്രദേശങ്ങളിലും രോഗം പടരാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു

ഏറ്റുമുട്ടലിൽ സൈന്യം രണ്ട് ് ഇന്നലെ വൈകുന്നേരത്തോടെ മേഖലയിൽ ഭീകരരും സൈന്യവും തമ്മിൽ തുടരുന്ന ഏറ്റുമുട്ടലിനൊടുവിലുണ് ഭീകരരെ വധിച്ചത് പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയായിരുന്ന് സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരു്ന്നു

ഇരു സൈനൃങ്ങളും സംയുക്തമായി നടത്തുന്ന വാർഷിക ഉഭയകക്ഷി പരിശീലനത്തിന്റെ രണ്ടാം പതിപ്പാണിത്

രണ്ട് സ്ഥാനാർത്ഥികളെ പിന്നീട് തീരുമാനിക്കും

മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും

കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം ഇന്ന് വൈകിട്ടോടെ ആദ്യ പട്ടിക് പുറത്തിറക്കുമെന്നാണ് സൂചന ഇന്ന് ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ബിജെപി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ

പത്രികാ സമർപ്പണത്തിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളും രണ്ടെണ്ണം മാത്രമേ പാടുള്ളൂ ഓൺലൈനായി പത്രിക നൽകുന്നവർ ഡൌൺലോഡ് ചെയ്ത് പകർപ്പ് വരണാധികാരിക്ക് നൽകണം കെട്ടിവെയ്ക്കേണ്ട തുകയും ഓൺലൈനായി അടയ്ക്കാം

രംഗസ്വാമിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി ഓൾ ഇന്ത്യ എൻ

കോൺഗ്രസ് ഇന്നലെ ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമാണ് ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്

രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ശിവരാത്രി ആശംസകൾ ്നേരുന്നതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ടിറ്ററിൽ കുറിച്ചു

ശിവരാത്രി ആഘോഷ ദിനത്തിൽ എല്ലാവിധ മംഗളാംശംസകൾ നേരുന്നതായി പ്രധാനമന്ത്രിയും ട്വിറ്ററിൽ കുറിച്ചു

ടോസ് നേടിയ ഗുജറാത്ത് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു

പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്

സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു